രാജ്യങ്ങളുടെ ആഭ്യന്തരകാരൃങ്ങളിൽ ഇടപെടുന്നത് നിർത്തണമെന്നും ഇന്ത്യ

മഴക്കെടുതിയെ തുട്ടർന്ന് കേരളം കർണാടക ന് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ രക്ഷാപ്രവർത്തന്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു കനത്ത മഴ കേരളത്തിൽ ഇന്നും തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്

ആയുഷ്മാൻ ഖുറാനയും വിക്കി കൌശലും മികച്ച നടന്മാർക്കുള്ള അവാർഡ് പങ്കിട്ടു കീർത്തി സുരേഷ് മികച്ച നടി

ജമ്മുകാശ്മീരിലെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാണ് കേന്ദ്രഗവൺമെന്റ് നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ തരം താഴ്ത്താനും ട്രെയിൻ സർവ്വീസ് നിർത്തി വെയ്ക്കാനുമുള്ള തീരുമാനങ്ങൾ പാകിസ്ഥാൻ ഏകപക്ഷീയമായാണ് സ്വീകരിച്ചതെന്നും വിദേശകാര്യ വക്താവ് പറഞ്ഞു

മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവ്യശ്യപ്പെട്ടു

ബി ഡയ്റ്റ്ടർ ജനറൽ പ്രാധാക്കെയിൽ ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജമ്മുകാശ്മീർ വിഷയം ഇന്ത്യയുടെ ആഭ്യന്തരകാര്യമാണെന്നും ഇക്കാര്യം ഉപയോഗിച്ച് രാജ്യത്ത് മുതലെടുക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ബംഗ്ലാദേശിലെ ഉയർന്ന പൊലീസ് വിഭാഗമായ ആർ

ബി വ്യക്തമാക്കി

കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയം നിയമം പ്രാബ്യത്തിലാക്കി ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലാണ് ജമ്മുകാശ്മീർ പുനഃസംഘടനാ ബിൽ പാസാക്കിയത് ബിൽ പ്രകാരം ജമ്മുകാശ്മീരിനെ നിയമ നിർമ്മാണസഭയുള്ള കേന്ദ്രഭരണ പ്രദേശമായും ലഡാക്കിനെ നിയമനിർമ്മാണ സഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശവുമായും പുനഃസംഘടിപ്പിച്ചിരുന്നു

കഴിഞ്ഞ ദിവസം കാണാതായ എട്ടുപേരുടെ മൃതദേഹം കണ്ടെടുത്തു സ്ഥിതിഗതികൾ നേരിടുന്നതിന് ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളും സജീവമായി പ്രർത്തിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി പ്രദീപ് വോയിസ് ദ ഇന്ന് കണ്ണൂർ വയനാട് കോഴിക്ക്ക്ട്ട് മലപ്പുറം പാലക്കാട് എറണാകുളം ഇടുക്കി ജില്ലകളിൽ അതിതീവ്രമഴയും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ ക്ടാസർകോട് എന്നീ ജില്ലകളിൽ ശക്തമായ മഴയും തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്നവർ തല്ക്കാലം അപ്പിടെനിന്ന് സുരക്ഷിത കേന്ദ്രങ്ങളി ലേക്ക് മാറിത്താമസിക്കുണ്ട്മെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു

ദുരന്തനിവാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പൊതു അവധി ദിവസങ്ങളായ ഇന്നും നാളെയും മറ്റെന്നാളും ദുരിതാശ്വാസ രക്ഷാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലെ ജീവനക്കാർക്ക് ഡ്യൂട്ടി നിശ്ചയിച്ച് നൽകാൻ ചീഫ് സെക്രട്ടറി ഉത്തരവായി കാലാവസ്ഥാ മുന്നറിയി പ്പിന്റെ അടിസ്ഥാനത്തിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട് രണ്ടു ദിവസമായി തുടരുന്ന കനത്ത മഴയുടെ ശക്തി ഇന്ന് കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം

മഴ ശക്തമായതിനെ തുടർന്ന് സംസ്ഥാനത്തെ ഡാമുകളിൽ നീരൊഴുക്ക് വർധിച്ചു കുറ്റ്യാടി പെരിങ്ങൽക്കുത്ത് ഡാമുകൾ തുറന്നു

മലമ്പുഴ അണക്കെട്ടിലേക്ക് നീരൊക്ക് കുറഞ്ഞതിനാൽ ഡാം ഉടൻ തുറക്കില്ല

ഡാമുകളിലെ ജലനിരപ്പ് ഗവൺമെന്റ് കൃത്യമായി നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നിരവധി വീടുകൾ തകർന്നു ക്ടാർഷിക മേഖലയിലും വൻ നാശനഷ്ടങ്ങളുണ്ടായി ഇടമലക്കൂടിയിലെ അഞ്ചു നടപ്പാലങ്ങളും മൂന്നു തൂക്കുപാലങ്ങളും മല്ല്വള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയതോടെ പ്രദേശം ഒറ്റപ്പെട്ടു

മുഖ്യമന്ത്രി ബി

അന്ധാഥുൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആയുഷ്മാൻ ഖുറാനയും ഉറി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിക്കി കൌശലും മികച്ച നടന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടു മഹാനടി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മലയാളിയായ കീർത്തി സുരേഷിനെ മികച്ച നടിയായും തിരഞ്ഞെടുത്തു സക്കറിയ മുഹമ്മദ് സംവിധാനം ചെയ്ത സുഡാനി ഫ്രം നൈജീരിയാണ് മികച്ച മലയാള ചിത്രം മലയാള ചിത്രം ജോസഫിലെ അഭിനയത്തിന് ജോജു ജോർജിനും സുഡാനി ഫ്രം നൈജീരിയയിലെ അഭിയത്തിന് സാവിത്രി ശ്രീധരനും ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ചു

ഗുജറാത്തി ചിത്രമായ ഹെല്ലാൽ ആണ് മികച്ച ചിത്രം ഉറി എന്ന ഹിന്ദി ചിത്രം സ്പ്പിക്ടാനം ചെയ്ത ആദിത്യ ഥറിനെ മികച്ച സംവിധായകനായും ്തിരുഞ്ഞെടുത്തു

ഉത്തർപ്രദേശ് ഗുജറാത്ത് ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും വ്യവസായ പ്രമുഖരും അദ്ദേഹത്ത അനുഗമിക്കു ന്നുണ്ട് റഷ്യയിൽ നിന്ന് രാജ്യത്തെ വാണിജ്യ വ്യവസായ മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആകർഷിക്കു കയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം റഷ്യ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലിന്റെ സന്ദർശനം

അതിർത്തി മേഖലയിലെ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിന് ഇരുരാജ്യങ്ങളും പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ചൈനീസ് ഭരണകൂടം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു

കേന്ദ്രമന്ത്രിമാരായ രമേഷ് പൊഖ്റയാൽ നിഷാങ്കും ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സംയുക്തമായി പദ്ധതിക്ക് ഡൽഹി കേന്ദ്രീയവിദ്യാലയത്തിൽ തുടക്കം കുറിച്ചു രാജ്യത്തെ മറ്റു സ്കൂളുകളിലേയ്ക്കും പദ്ധതി നടപ്പാക്കാനുള്ള രൂപരേഖയും തയ്യാറാക്കിയിട്ടുണ്ട്

രാജ്യത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ടായ ജെ